പുത്രന്മാരും ഉൾപ്പെട്ടുന്ന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ര ാഴ്ച്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സി ബി ഐയോട് സൂപ്രിംകോടതി

ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത ഹർജി സുപ്രീംകോടതി തള്ളി

പ്രോത്സാഹിപ്പിക്കുന്നതിന് റിസർവ് ബാങ്ക് അഞ്ചംഗ സമിതിയെ നിയമിച്ചു

ഉത്തർ പ്രദേശിൽ എട്ടും മഹാരാഷ്ട്രയിൽ ഏഴും ഉത്തരാഖണ്ഡിലും ആസാമിലും അഞ്ചും സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറിലും ഒഡീഷയിലും നാലു സീറ്റിലും ജമ്മുകാശ്മീർ അരുണാചൽപ്രദേശ് മേഘാലയ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ര ുസീറ്റുകളിലുമാണ് ആദ്യ ഘട്ടത്തിൽ മൽസരം നടക്കുന്നത് ഛത്തീസ്ഗഡ് മണിപ്പൂർ മിസോറാം നാഗാലാന്റ് ത്രിപുര സിക്കിം ആന്റമാൻ നിക്കോബാർ ദ്വീപ് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഓരോ ലോക്സഭ സീറ്റിലുമാണ് മൽസരം ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ഇതുകൂടാതെ നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ആദ്യഘട്ടത്തിൽ നടക്കുന്നു ്

തമിഴ്നാട്ടിൽ പ്രധാന പാർട്ടികളുടെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷ ഡോ തമിലിസായി സൌന്ദരരാജൻ തൂർത്തുക്കുടി മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിക്കുന്നത് ഡി എട് കെയുടെ കനിമൊഴി കരുണാനിധിയാണ് പ്രധാന എതിരാളി

ഇതേ മണ്ഡലത്തിൽ നിന്നുമാണ് അവർ നിലവിൽ എം പിയായിട്ടുള്ളത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നാഗ്പൂർ ലോക്സഭ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമ്പോൾ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റും മുൻമുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ നാൻഡഡ് മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചു

കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫ്ളൈയിംഗ് സ്കാഡ് സംസ്ഥാനത്ത് നിന്നും പതിനയ്യായിരത്തിലേറെ ലിറ്റർ മദ്യം പിടിച്ചെടുത്തിട്ടു ് തെരഞ്ഞെടുപ്പ് കമ്മിഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പിടിച്ചെടുത്ത മദ്യം സംബന്ധിച്ച റിപ്പോർട്ട് എക്സൈസ് വകുപ്പ് എല്ലാ ദിവസവും കമ്മിഷന് കൈമാറണം

ആസ്ന്നുമാ്യ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ നിയമസഭയിലും ഒന്ന് ് എന്ന തോതിലാണ് വി വി പാറ്റുകൾ നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമോ എന്ന വിഷയത്തിലാണ് കോടതി നിർദ്ദേശം ആരാഞ്ഞത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് ദീപക് ഗുപ്ത എന്നിവരടങ്ങിയ ബഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മിഷനോട് അഭിപ്രായം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത്

പാവപ്പെട്ട ചെറുകിട പരിമിത കർഷകരുടെ വായ്പ പൂർണ്ണമായും എഴുതി തള്ളുമെന്ന് പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു കർഷകർക്ക് മെച്ചപ്പെട്ട ആദായം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും സ്വീകരിക്കുമെന്ന് ന്യൂഡൽഹിയിൽ പ്രകടന പത്രിക പുറത്തിറക്കവേ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ഡി പി തൃപാഠി പറഞ്ഞു

കോൺഗ്രസ്സ് നേതാവ് വിശ്വനാഥ് ചതുർവേദി ഫയൽ ചെയ്ത കേസിൽ വാദം കേൾക്കുകയായിരുന്നു ബഞ്ച്

വാദ്ര സമർപ്പിച്ച ഹർജി സ്വീകരിക്കരുതെന്നും വാദ്ര വസ്തുതകൾ ബോധപൂർവ്വം മറച്ച് വച്ചതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് ഹർജി തള്ളിയത്

തലാഖ് ഇ ബിത്തദ് എന്ന് അറിയപ്പെടുന്ന പെട്ടെന്നുള്ള മുത്തലാഖ് അനുസരിച്ച് മുസ്തിം ഭർത്താവിന് ഒരുമിച്ച് മൂന്ന് തവണ തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്താൻ സാധിക്കും

ചാണ്ഡിഗഢിലെ വ്യോമസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ എയർചീഫ് മാർഷൽ ബി എസ് ധനോവ ഹെലികോപ്ടറുകൾ സേനയിലേക്ക് പ്രവേശിപ്പിച്ചതായി പ്രഖ്യാപിച്ചു

ഉയർന്ന മേഖലകളിൽ കുത്തനെ പറന്നുയരാനും കൂടുതൽ ഭാരം വഹിക്കാനും ഈ ഹെലികോപ്ടറുകൾക്ക് സാധിക്കുമെന്ന് ശ്രീ ധനോവ പറഞ്ഞു രാത്രിയിലും സൈനിക പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്ന ഇന്ത്യൻ സേനയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ചിനുക്ക് നിർമ്മിച്ചിട്ടുള്ളതെന്നും ഇവ രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ന്യൂഡൽഹിയിൽ നിതി ആയോഗ് സംഘടിപ്പിച്ച ഫിനാൻഷ്യൽ ടെക്നോളജി ഫിൻടെക് കോൺക്ലേവ് ഉദ്ഘാടനക ചെയ്യുകയായിരുന്നു ആർ ബി ഐ ഗവർണർ ധനകാര്യ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ഫിൻടെക് കോൺക്ലേവ് മുതൽകൂട്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാജ്യത്തെ ഓൺലൈൻ പണമിടപാടുകൾ ഒൻപത് മടങ്ങ് വർദ്ധിച്ചിട്ടു ്

വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ബാങ്കിംഗ് സ്റ്റാർട്ട് അപ് സേവനം മേഖലകളിൽ നിന്നുള്ളവരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നു ്

ആദ്യപാദിത്തിൽ ക്രൊയേഷ്യൻ തലസ്ഥാനമായ സാഗ്റബിൽ എത്തിച്ചേരുന്ന രാഷ്ട്രപതി ക്രൊയേഷ്യൻ പ്രസിഡന്റുമായും പ്രധ്ാനമന്ത്രിയുമായും ചർച്ച നടത്തുമെന്ന് കിഴക്കൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി വിജയ് താക്കൂർ പറഞ്ഞു വിവിധ മേഖലകളിലെ നിക്ഷേപങ്ങളെപ്പറ്റിയുള്ള ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു

ബൊളീവിയയിൽ പ്രസിഡന്റുമായും മറ്റ് ഉന്നതാധികാരികളുമായും ചർച്ച നടത്തുന്ന രാഷ്ട്രപതി ഇന്ത്യ ബൊളീവിയ ബിസിനസ് ഫോറങ്ങളിലും പങ്കെടുക്കും തുടർന്ന് വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും

പദ്ധതി സംബന്ധിച്ച് തന്റെ പാർട്ടി നിരവധി സാമ്പത്തിക വിദഗ്ധരുമായി ആശയ വിനിമയം നടത്തിയതായും അതുവഴി ഉ ാകുന്ന സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് പഠനം നടത്തിയതായും ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു ഇത് ലോകത്തെ ഏറ്റവും ബൃഹത്തായു കൂറഞ്ഞ വേതന പദ്ധതി ആയിരിക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ അവകാശപ്പെട്ടു

പാർട്ടി ജനറൽ സെക്രട്ടറി അനിൽ ജെയിനിന്റെ സാന്നിദ്ധ്യത്തിൽ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്താണ് ഇവർ ബി ജെ പിയിൽ ചേർന്നത് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും കായികമേഖലയെ മെച്ചപ്പെടുത്തുന്നതിനുമായി നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊ ാണ് പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ദീപാ മാലിക് പറഞ്ഞു

രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്